രണ്ടാം എൻ

എ ഗവൺമെന്റിന്റെ ആദ്യ നൂറ് ദിവസങ്ങൾ വികസനം പരസ്പര വിശ്വാസം രാജ്യപുരോഗതി എന്നിവയ്ക്കു മു വേണ്ടിയായിരുന്നുവെന്ന് പ്രിയ്ക്കാന്മന്ത്രി നരേന്ദ്രമോദി

പിന്നാക്ക വിഭാഗങ്ങളുടേയും തൊഴിലാളികളുടേയും ഉന്നമനമാണ് രണ്ടാം എൻ

എ ഗവൺമെന്റ് ലക്ഷൃമിടുന്നതെന്ന് മന്ത്രി പ്രകാശ് ജാവദേക്കർ

എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ ഫൈനൽ ഇന്ന്

എ ഗവൺമെന്റിന്റെ ആദ്യ നൂറ് ദിവസങ്ങൾ വികസനം പരസ്പര വിശ്വാസം വമ്പിച്ച രാജ്യപുരോഗതി എന്നിവയ്ക്കു വേണ്ടിയായിരുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശ സുരക്ഷ ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഇക്കാലയളവിൽ ഗവൺമെന്റിന് സാധിച്ചു

യുടെ ജൻ ആശീർവാദ് യാത്രയുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലെ റോഹ്തക്കിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞുടൂർ ്വർഷത്തിനിടയിൽ നടന്ന ഏറ്റവും ഫലപ്രദമായ പാർലമെന്റ് സ്ത്രജ്മേളനത്തിൽ നിരവധി ബില്ലുകൾ പാസ്സാക്കാൻ സാധിച്ചു

ഒയുടെ സമാർമായി അവസ്ഥയിലാണ് രാജ്യം മുഴുവനും നിന്നിരുന്നതെന്ന് പ്രധാന്റ്മുന്തി പറഞ്ഞു നേരത്തെ ഹരിയാനയിലെ വിവിധ വികസന പദ്ധതിക്ൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്പിട്ടു ഗൂരുഗ്രാമിൽ ശ്രീ

പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഹരിയാന ഗവൺമെന്റ് നൽകുന്ന പ്രധാന്യത്തിൽ ശ്രീ നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു

കൂടുതൽ വിവരങ്ങളുമായി

വടക്കുകിഴക്കൻ സംസ്ഥാന ങ്ങളിലെ ജനങ്ങളുടെ ആശ്യങ്കിക്കുൾ ശ്രീ

വടക്ക്കിഴക്കൻ കൌൺസിലിന്റെ ഫണ്ടുകളുട്ടമൂന്നിൽഒന്ന് ഈ സംസ്ഥാനങ്ങളിലെ മുൻഗണനാ മേഖലകൾക്കായി നീക്കിവയ്ക്കുമെന്ന്ആഭ്യന്തരമന്ത്രി പ്രഖ്യാ പിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും എൻ

എ ഗവൺമെന്റിന്റെയും മുൻഗണനാ വിഷയമാണ്വടക്ക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെവികസനം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം തീവ്രവാദി കളോട്അഭ്യർത്ഥിച്ചു തീവ്രവാദത്തിനെതിരെഅസഹിഷ്ണുതാ നയംതുട രുമെന്നുംഅദ്ദേഹംമുന്നറിയിപ്പ് നൽകി

എന്നാൽഒരു പൌരനും രജിസ്റ്ററിൽ നിന്ന് പുറത്താകില്ലെന്നും അദ്ദേഹം അറിയിച്ചു

അമിത്ഷായെസന്ദർശിച്ച ബി ജെ പി പ്രതിനിധി സംഘ ത്തോട് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചതായി അസം വന മന്ത്രി പറഞ്ഞു

ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽസംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകർ പാവപ്പെട്ടവർ തൊഴിലാളികൾ പട്ടികജാതി പട്ടികവർഗവിഭാഗത്തിലുള്ളവർതുടങ്ങിയവരുടെശാക്തീകരണംലക്ഷ്യമി ട്ടാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ദേശീയതാത്പര്യമുള്ള ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ളതയ്യാറെടുപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിആരംഭിച്ചിരുന്നു ജമ്മു കാശ്മീരിന്റെ പുനസംഘടനയുംലഡാക്കിനെ കേന്ദ്ര ഭരണ പ്രദേശ മായി പ്രഖ്യാപിച്ചതുംചരിത്രത്തിന്റെ ഭാഗമാണ്

എല്ലാവർക്കും പാർപ്പിടം ജൽ ജീവൻ മിഷൻ ആയുഷ്മാൻ ഭാരത് കർഷ കരുടെവരുമാനം ഇരട്ടിപ്പിക്കൽ ഉജ്ജലയോജനമുത്തലാഖ് നിരോധനം തുടങ്ങിയവയെല്ലാംകേന്ദ്ര ഗവൺമെന്റ്സ്വീകരിച്ച പ്രധാന നടപടികളായി രുന്നുവെന്നുംഅദ്ദേഹം പറഞ്ഞു

പ്രകാശ്ജാവദേ ക്കർ പ്രകാശനം ചെയ്തു

ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

സ്ഥിതിമെച്ചപ്പെട്ട സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽഭരണകൂ ടംഅയവ്വരുത്തിക്കൊണ്ടിരിക്കുകയാണ്

വരും വർഷങ്ങളിൽ ഇന്ത്യ കായിക മേഖലയിൽ വൻ ശക്തിയായി മാറുമെന്നും അഹമ്മദാബാദിലെ ഖേൽ മഹാകുംഭ് ഉദ്ഘാടനം ചെയ്യവെ അദ്ദേഹം പറഞ്ഞു കായിക രംഗത്ത് അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നതിൽ ഗുജറാത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് മന്ത്രി സൂചിപ്പിച്ചു

ആർ ഒ

തെർമ്മൽ ദൃശ്യങ്ങളിലൂടെയാണ് ്ങ്ടൂർബ്ിറ്റർ വിക്രം ലാൻഡറിന്റെ സ്ഥാനം വെളിപ്പെടുത്തിയതെന്ന് ഐ

എന്നാൽ ലാൻഡറുമായി ഇതുവരെയും ആശയവിനിമയ ബന്ധം പുനസ്ഥാപിക്കാനായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

അതിനാൽ തന്നെ ചന്ദ്രോപരിതലം കാണാനു ചിത്രീകരിക്കാനും ഓർബിറ്ററിന് കഴിയും ശനിയാഴ്ച പുലർച്ചെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതിന് നിമിഷങ്ങൾക്കു മുമ്പ് വിക്രം ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടമായിരുന്നു

ഒ ആയിരക്കണക്കിന് യുവജനങ്ങളെ പ്രചോദിപ്പിച്ച് ശാസ്ത്രമേഖലയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ

ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളൂടെ ട്വീറ്റുകൾക്ക് നൽകിയ മറുപടിയിലാണ് പ്രധാനമന്ത്രി ഇങ്ങന്റെട്ടിട്ടിപ്രായപ്പെട്ടത് അശ്രാന്ത പരിശ്രമവും ആത്മസമർപ്പണവൂർപ്പികൊണ്ട് ഐ

ഒ ബഹിരാകാശ സാങ്കേതിക മേഖല്യീൽ ഒന്നാമതായി തുടരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഫൈനലിൽ സെറീനാ വില്യംസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആൻഡ്രീസ് ക്യൂ കന്നി ഗ്രാൻഡ് കിരീടം സ്വന്തമാക്കിയത്

ന്യൂഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി ആദരാഞ്ജലി അർപ്പിച്ച ശ്രീ നരേന്ദ്രമോദി ജെഠ്മലാനിയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കോടതിയിലും പാർലമെന്റിലും ഒട്ടേറെ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു രാം ജഠ്മലാനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ അനുസ്മരിച്ചു അടിയന്തിരാവസ്ഥയുടെ ഇരുട്ട് നിറഞ്ഞ ദിനങ്ങളിൽ പൊതുജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ജെഠ്മലാനിയുടെ സേവനം രാജ്യം എന്നും സ്മരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ക്രിമീനൽ നിയമത്തിലെ വിദഗ്ദ്ധനും വളരെ പരിശ്രമശാലിയുമായഅംഗ്ലമായി അസോസിയേഷൻ അദ്ദേഹത്തെ വിശേ ഷിപ്പിച്ചു